കേന്ദ്ര മന്ത്രിസഭാ യോഗം വർദ്ധിപ്പിച്ചു

രണ്ടാം മോഡി ഗവൺമെന്റിന്റെ ആദ്യം പ്രിപാതു ബജറ്റ് നാളെ

ആതിഥേയരായ ഇംഗ്ലണ്ട് സെമിയിലെത്തി

കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതിയുടേതാണ് തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രദ്ധേയമായ ചുവടുവയ്പ്പാണിതെന്ന് കേന്ദ്രകൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു

ഭരണ നിർവ്വഹണ രംഗത്ത് കാര്യക്ഷമത വർധിപ്പിക്കാൻ ഇത് പ്രയോജനം ചെയ്യുമെന്ന് ന്യൂഡൽഹിയിൽ മന്ത്രിസഭാ ്തീരുമാനങ്ങൾ അറിയിച്ച കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു അഹമ്മദാബാദ് ലക്നൌ മംഗളുരു വിമാനത്താവളങ്ങളെ പൊതു സ്വകാര്യ പങ്കാളിത്തതോടെ അദാനി ഗ്രൂപ്പിന് പാട്ടത്തിന് നൽകാനും കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനിച്ചു

ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും സാമ്പത്തിക സർവേ അവതരിപ്പിക്കുന്നത് രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയുടെ സ്ഥിതിവിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമ്പത്തിക സർവേ

ബജറ്റിനു മുന്നോടിയായുള്ള ്ചൂർച്ച ധനകാര്യമന്ത്രിയുടെ പ്രത്യേക ബജറ്റ് തൽസമയം അവതര്യ്ക്ക് പ്രത്യേക ബഡ്ജറ്റ് വാർത്തകൾ വിദഗ്ദ്ധരെ ഉൾപ്പെടുത്കീയുള്ള ബഡ്ജറ്റ് ചർച്ചകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്

ഒഴുക്കിൽപ്പെട്ട ഒരാളെ ഒന്നര കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തി

മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മഹാരാഷ്ട്രയിലെ ജലവിഭവമന്ത്രി ഗിരീഷ് മഹാജൻ പറഞ്ഞു വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് നാല് മാസത്തിനുള്ളിൽ പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകും സംഭവത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു

ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തരാണ് രഥയാത്രൂയിൽ പങ്കുചേരാൻ ക്ഷേത്രത്തിലെത്തിച്ചേരാറുള്ളത് ഭഗവാന്റ് ജഗ്ന്നാഥന്റെയും ബലഭദ്രന്റെയും ദേവീസുഭദ്രയുടെയും പ്പിഗ്ഹങ്ങൾ തടികൊണ്ടുള്ള വലിയ രഥങ്ങളിൽ ജഗന്നാഥ ക്ഷേത്രി്ത്യിൽ നിന്നും ഗുണ്ടിച്ച ദേവീക്ഷേത്രത്തിലേക്ക് ഭക്തർ വ്ലീച്ചുകൊണ്ടുപോകുന്നതാണ് പ്രധാന ചടങ്ങ്

രാജ്യത്താകെ ഏഴായിരത്തിലേറെ അധ്യാപകരെ തിരഞ്ഞെടുക്കാനാണ് പരീക്ഷ നടത്തിയത്

അഞ്ച് ട്രസ്റ്റുകൾ വഴിയാണ് ജമാത്ത് ഉദ്ദ് ദവ നേതാവ് ഹാഫിസ് സെയ്ദും കൂട്ടാളികളും ധനസമാഹരണം നടത്തിയതെന്ന് പാകിസ്ഥാൻ തീവ്രവാദ വിരുദ്ധ വകുപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

ക് ഈ വർഷം രണ്ട് ലക്ഷം ഇന്ത്യാക്കാരാണ് ഹജ്ജ് തീർത്ഥാട്ടുറ്റും ന്ടത്തുന്നതെന്നും ഇത് എക്കാലത്തേയും റെക്കോർഡാണ്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് മള്റ്റ്ന്നുൾ വൈകിട്ട് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ മുഖ്യമന്ത്രി പിണ്ക്കിയി് വിജയൻ ഉദ്ഘാടനം ചെയ്യും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഡ്രോണുകൾ ഉയർത്തുന്ന സുരക്ഷാഭീഷണികളെക്കുറിച്ച് ഗവൺമെന്റിന് ബോദ്ധ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

മുസഫർപൂരിലെ ശ്രീകൃഷ്ണ മെഡ്രിക്ക്ൽ കോളേജിൽ നൂറ് കിടക്കകളുള്ള പിഡിയാട്രിക് ഇന്റ്ൻ ്ലസീവ് കെയർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കാൻ വ്വേണ്ട ന്ടപടികൾ സ്വീകരിച്ചു

കുട്ടികളുടെ മരണവുമായി ബ്ന്ധപ്പെട്ട് ലഭിച്ച പരാതിയിലാണ് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റി്ന്റെ വിശുദീകരണം തേടിയത്

കെ ബിർള അന്തരിച്ചു

ഭൌതികദേഹം കൊൽക്കത്തയിലെ വസതിയായ ബിർള പാർക്കിൽ എത്തിച്ചശേഷം സംസ്ക്കാരം ഇന്ന് നടക്കും

പടിഞ്ഞാറൻ യൂറോപ്പ് അമേരിക്ക ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളെയാണ് ഇത് കൂടുതൽ ബാധിച്ചത് ഇന്ത്യയിലും സേവനങ്ങൾ തടസ്സപ്പെട്ടതായി പരാതി ഉയർന്നു വീഡിയോകൾ ഫോട്ടോകൾ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യുന്നതിനും ഡൌൺലോഡ് ചെയ്യുന്നതിനുമുണ്ടായിരുന്ന തടസ്സങ്ങൾ പരിഹരിച്ചതായി ഫെയ്സ്ബുക്ക് വക്താവ് അറിയിച്ചു

ഇന്ന് അഫ്ഗാനിസ്ഥാൻ പ്ടെസ്റ്റ് ഇൻഡീസിനെ നേരിടും

ധനകാര്യ കൃഷിവകുപ്പ് സെക്രട്ടറിമാരും കാർഷികോൽപാദന കമ്മീഷണറും സംഘത്തിലുണ്ടാവും

റേഷൻ ഡിപ്പോകൾ വഴി ശബരി ഉത്പന്നങ്ങൾ വിതരണം നടത്തുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം കരുനാഗപ്പള്ളി സപ്ലൈകോ ഹൈപ്പർ മാർക്കറ്റിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

എ ഇബ്രാഹിം കുട്ടി കൊച്ചിയിൽ നിര്യാതനായി